മുൻകരുതലാണ് ആവശ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വി സിന്ധു കാർട്ടറിൽ

കേന്ദ്രസർക്കാർ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് കാണുന്നത് കേന്ദ്രമന്ത്രിമാർ വരുംദിവസങ്ങളിൽ വിദേശ യാത്രകൾ ഒഴിവാക്കും ജനങ്ങളും അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ നിർദ്ദേശിച്ചു രോഗബാധയുടെ വ്യാപനം തടയുന്നതിന് വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

അതിന്റെ ഭാഗമായാണ് ചില രാജ്യങ്ങളുടെ വിസ റദ്ദാക്കൽ നടപടികളിലേയ്ക്ക് കടന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

വൈറസ് വ്യാപനം തിട്ടയ്ക്കാൻ എല്ലാ മുൻ കരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

വിദേശത്തുള്ള ഇന്ത്യക്കാരുള്ട് സ്ട്ര്ക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ കൂടുതൽ പ്രധാന്ദ്യുർ നിൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്ന സമ്മേളനങ്ങളും കൂട്ടായ്മകളും ഒഴിവാക്കണമെന്ന് കർശനമായ നിർദ്ദേശമുണ്ട് ചുമ പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കുക കൈകൾ വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കണ്ണ് മൂക്ക് വായ എന്നിവിടങ്ങളിൽ സ്പർശിക്കുക സോപ്പ് സാനറ്റൈസർ തുടങ്ങിയവ ഉപയോഗിച്ച് കഴുകി കൈകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും മാർഗ നിർദ്ദേശത്തിൽ എടുത്തു പറയുന്നു പനിയോ ചുമയോ ശ്വാസതടസ്സമോ അനുഭവപ്പെട്ടാൽ അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മുഖംമൂടിയോ തൂവാലയോ കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കണമെന്നും നിർദ്ദേശമുണ്ട്

മെയിലിലും ജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാം

അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും സർക്കാർ ഇന്ത്യൻ പൌരൻമാർക്ക് നിർദ്ദേശം നൽകി

ജോധ്പൂർ ത്സാൻസി ഗൊരക്പൂർ കൊൽക്കുത്ത ജയ്സാൽമീർ ചെന്നൈ ഡ്യോലാലി എന്നീ നഗരങ്ങ്ളിലാണ് പുതിയ നിരീക്ഷണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയത്

അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യക്കാർ തിരിച്ചെത്തുമെന്ന് കരുതുന്നതായി സൈനിക വക്താവ് കേണൽ അമൻ ആനന്ദ് അറിയിച്ചു

ജയ്സാൽമറിലും ജോധ്പൂരിലും സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ക്വാറന്റൈൻ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്

പുതിയതായി രണ്ടു പേർക്കു കൂടി രോഗം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ദുബായിൽ നിന്ന് വന്നയാൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും ഖത്തറിൽ നിന്ന് വന്നയാൾ തൃശൂർ ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ് ഇറ്റലിയിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരുവനന്തപുരത്തെത്തിയ വ്യക്തിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി

സർക്കാർ ഇപ്പോൾ പ്രതിരോധ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവധിയിലുള്ള സെക്രട്ടറിമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ്കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ എക്ട്രിമാരായ ഇ ചന്ദ്രശേഖരൻ കെ

ശൈലജ എ

മൊയ്ത്രീൻ തുടങ്ങിയവർ പങ്കെടുത്തു

കഴിഞ്ഞ ജനുവരിയിൽ ഡയാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച മഡഗാസ്കറിലെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് അരി വിതരണം ചെയ്യും

ചുഴലിക്കാറ്റ് കെടുതിയിൽ മഡഗാസ്കറിനു വേണ്ടി ആദ്യമായി പ്രതികരിച്ച രാജ്യമാണ് ഇന്ത്യ

പോലീസ് ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ പ്രോസിക്യൂട്ടർമാർ തുടങ്ങിയവർക്ക് സൈബർ കുറ്റകൃത്യ അന്വേഷണത്തെക്കുറിച്ചുള്ള ഇ പഠന സേവനങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണിത്

ഇന്ത്യയും അമേരിക്കയും കൂടാതെ യു കെ ഓസ്ട്രേലിയ ബ്രസീൽ കാനഡ ജർമ്മനി ഇറ്റലി ജപ്പാൻ ന്യൂസിലാന്റ് സിങ്കപ്പൂർ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലുള്ളത്

സിന്ധു കാർട്ടറിൽ കടന്നു

കാർട്ടറിൽ ജപ്പാന്റെ നൊസോമി ഒകുഹാരയാണ് സിന്ധുവിന്റെ എതിരാളി

ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം മാറിയതിന് ശേഷം ഇന്ത്യ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോറിസ് ജോൺസണെ വീണ്ടും ക്ഷണിച്ചു

ടി

ടി പി ടൂർണമെന്റുകളും എ ടി പി ചലഞ്ചർ ഇവന്റുകളും നിർത്തിവച്ചിട്ടുണ്ട്